രാമക്ഷേത്ര വിഷയത്തിൽ നീതിന്യായ വൃവസ്ഥയിൽ വിശ്വാസമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനാവശ്യമായ പ്രസ്താവനകൾ ആഹിാനം

ഉന്നത വിദ്യാഭ്യാസ്സ് രംഗത്ത് സ്വകാര്യ പങ്കാളിത്തതോടെയുള്ള് പുതിയ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയ്ക്ക്ട് കേന്ദ്രം രൂപം നൽകി

പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നു മുന്നണികളും നാളെ പരസ്യപ്രചരണം അവസാനിപ്പിക്കുന്നു

ഇ സിഗരറ്റ് നിരോധിച്ചു കൊണ്ടുള്ള ഓർഡിനൻസിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നല്കി

ഗുസ്തി താരങ്ങളായ ബജ്റംഗ് പുനിയയും രവി ദഹിയയും ടോക്കിയോ ഒളിമ്പിക്സിന് യോഗൃത നേടി

രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്രഭട്നവിസ് നയിച്ച മഹാജനാദേശ് യാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ

കേസിൽ വാദം പൂർത്തിയാക്കുന്നതിനായി അധികസമയം വാദം കേൾക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചിട്ടുണ്ട്

എന്നാൽ ഇന്ന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടിയിരിക്കുകയാണ് നൂറിലധികം രാജ്യങ്ങളിലേക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഇന്ത്യ കയറ്റി അയയ്ക്കുന്നുണ്ടെന്ന് അദ്ദേഹം വൃക്തമാക്കി

എൻ പൊതുസഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിനാണ് പ്രധാനമന്ത്രി അമേരിക്കയിലെത്തുന്നത്

സമ്മേളനത്തിൽ ിശ്രീ

ഐ പികൾക്കുള്ള പ്രത്യേക വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിക്കുന്ന പാകിസ്ഥാൻ നടപടിയെ ഇന്ത്യ അപലപിച്ചു സാധാരണ രാജ്യങ്ങളെ പോലെയല്ല പാകിസ്ഥാന്റെ നടപടിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് പാകിസ്ഥാൻ വ്യോമപാത നിഷേധിക്കുന്നത്

ഏകപക്ഷീയമായ നടപടികൾ പാകിസ്ഥാൻ പുനപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

കേന്ദ്രമന്ത്രിസഭ ഈ ഓർഡിനൻസിന് ് ഇന്നലെ അംഗീകാരം നല്കിയിരുന്നു

കേരളത്തിൽ നേരത്തെ തന്നെ ഇവയ്ക്ക് നിരോധന്റ് ഉണ്ട്

ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചു ലഘു യുദ്ധവിമാനമാണ് തേജസ്റ്റ്

സ്വദേശിവൽക്കരണത്തിൽ രാജ്യം കൈവരിച്ചു നേട്ടങ്ങൾ അടുത്തറിയുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം തേജസ് യുദ്ധ വിമാനത്തിൽ പറന്ന ആദ്യ പ്രതിരോധ മന്ത്രിയാണ് ശ്രീ

വ്യോമസേനയ്ക്കു വേണ്ടി ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് നിർമ്മിച്ചു തേജസ് എയ്റോനോട്ടിക്കൽ വികസന ഏജൻസിയാണ് രൂപകൽപന ചെയ്തത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി ശക്തിപ്പെടുത്താൻ തേജസ്സിനു കഴിയുമെന്ന് രാജ്നാഥ് സിംഗ് ടിറ്ററിൽ കുറിച്ചു

വിദ്യാഭ്യാസ നിലവാരം കൂട്ടുക എന്നു ഉദ്ദേശത്തോടെ നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ട്ടെക്നോളജി അഥവാ നീറ്റ് എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടുകി ്ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിർമ്മിത ബുദ്ധി പ്രയോജനഉപ്പടുത്തുന്നതാണ് പദ്ധതി പഠിതാവിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്ക് പ്പ്ക്തിഗത ശ്രദ്ധ നല്കിയുള്ള പഠനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം ഒട്ടേറെ പുതു സംരംഭകർ വിദ്യാഭ്യാസ രംഗത്തെ സാങ്കേതിക വിദ്യ വികസനത്തിന് തയ്യാറായി രംഗത്തു വന്നിട്ടുണ്ടെന്നും മാനവവിഭവശേഷി മന്ത്രാലയം അറിയിച്ചു സാമ്പത്തികമായി പിന്നാക്കം നില്ക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ സൌജന്യമായി ലഭ്യമാക്കാൻ മന്ത്രാലയം നടപടികൾ എടുക്കുമെന്നും വ്യക്തമാക്കി

ന്യൂഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട നയതന്ത്ര സംഘം അദ്ദേഹത്തിന് വരവേല്പ് നല്കി

രാഷ്ട്രപതിരാംനാഥ്കോവിന്ദ് ഉപരാഷ്ട്രപതി എം

ആഗ്ര ബോധ് ഗയ ബംഗളൂരു എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും

ഔദ്യോഗികമായി പരസ്യ ശനിയാഴ്ചവരെ പരസ്യപ്രചരണത്തിന്റ് അ്നുമതിയുണ്ടെങ്കിലും അന്ന് ശ്രീനാരായണഗുരു സമാധിയാകയിൽ പ്രസ്യ പ്രചാരണം ഒഴിവാക്കാൻ മുന്നണികളുടെയും പ്രി നേതൃത്വംതീരുമാനിക്കുകയായിരുന്നു

ഉപതെരഞ്ഞെടുപ്പുമായി ബ്ദ്ധപ്പെട്ട അഭിപ്രായ സർവ്വെകൾ വോട്ടെടുപ്പു ദിവസം ആറുമണിവരെ വെളിപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പു കമ്മീഷൻ വിലക്കി

ധനോവ വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം

എക്സ് മീഡിയ അഴിമതിക്കേസിൽ മുൻ ധനകാര്യമന്ത്രി പി ചിദംബരത്തിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി അടുത്തമാസം മൂന്ന് വരെ നീട്ടി ചിദംബരത്തിന് വൈദ്യപരിശോധന അനുവദിക്കാനും കോടതി ഉത്തരവിട്ടു ചിദംബരത്തിനെ ജയിലിൽ അയച്ചപ്പോഴുളള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നതായി സി ബി

ചിദംബരത്തിനുവേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ ഇതിനെ എതിർത്തെങ്കിലും റിമാന്റ് നീട്ടാൻ കോടതി ഉത്തരവിടുകയായിരുന്നു

ഛത്ര ജില്ലയിൽ മഗധ് അമ്രപാലി കൽക്കരി ഖനന മേഖലയിൽ കരാറുകാരിൽ നിന്നും കൽക്കരി കച്ചവടക്കാരിൽ നിന്നും നിയമവിരുദ്ധമായി പിരിച്ചെടുത്ത ലെവിയാണ് കണ്ടു കെട്ടിയത്

കഴിഞ്ഞ ജനുവരിയിൽ ദുബായ് ൽ നിന്നും വിളിച്ചു വരുത്തിയാണ് ദീപകിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ജാമ്യം നിഷേധിച്ച വിചാരണ കോടതി നടപടിക്കെതിരെയാണ് ദീപക് ഹൈക്കോടതിയെ സമീപിച്ചത്

ക്സ്പാക്കിസ്ഥാനിൽ നടന്ന ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ കടന്നതോടെയാണ് ഇത്

ചോഷുവാങിനോടാണ് ലോകചാമ്പ്യനായ പി

പുരുഷൻമാരുടെ സിംഗിൾസിൽ ബി സായ് പ്രണീത് ചൈനയുടെ ലു ഗുവാംഗ് സു നെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി കാർട്ടർ ഫൈനലിൽ കടന്നു